എൽ രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ്റൈഡേ ഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ദർശ്ശിക്കു നിപ വൈറസ് ബാധ യുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ഉച്ചയ് ക്ക് കോഴിക്കോട് കലക്ടറേറ്റിൽ സർവ്വകക്ഷിയോഗം ചേരും മന്ത്രിമാരായ കെ കെ ശൈലജ ടി പി രാമകൃഷ്ണൻ ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ മേയർ തുടങ്ങിയവർ പങ്കെടുക്കും വൈകീട്ട് നാലിന് കോർപ്പറേഷൻ മേയർ ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷർ സെക്രട്ടറിമാർ കുടുംബശ്രീ ശുചിത്വ മിഷൻ പ്രതിനിധികൾ തുടങ്ങിയവരുടെ യോഗവും ചേരുന്നുണ്ട് നിപ സാഹചരൃത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ എല്ലാ ദിവസവും വൈകീട്ട് ആറരയ്ക്ക് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ കോർഗ്രൂപ്പ് അവലോ കന യോഗം ചേരും ജില്ലാ കലക്ടർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കേന്ദ്ര വിദഗ്ദ്ധ സംഘത്തിന്റെ പ്രതിനിധികൾ മെഡിക്കൽ കോളജ് പ്രിൻസിപ്പാൾ ജില്ലാ ആരോഗൃവകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും നിപ ബാധിച്ച് ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച പേരാമ്പ്ര ചങ്ങരോത്ത് സ്വദേശി മൂസയുടെ മൃതദേഹം ലോകാരോഗൃ സംഘടനയുടെ പ്രോട്ടോ ക്കോൾ പാലിച്ച് കോഴിക്കോട് കണ്ണംപറമ്പ് ശ്മശാനത്തിൽ കബറടക്കി മൃത ദേഹം ദഹിപ്പിക്കുന്നതിനോട് ബന്ധുക്കൾ വിയോജിപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് വായു കടക്കാത്ത ഇരട്ട കവറുകളിൽ പൊതിഞ്ഞ് പത്തടി താഴ്ച യിൽ അടക്കം ചെയ്യാൻ തീരുമാനിച്ചത് രദേഷ്ടങ ഇന്ന് നടത്താനിരുന്ന വടകര റവന്യൂ ഡിവിഷന്റെ ഉദ്ഘാടനം മാറ്റി രാവിലെ വടകര റസ്റ്റ്ഹൌസ് പരിസരത്ത് റവന്യൂ ഡിവിഷൻ ഉദ്ഘാടനം നട ത്താനായിരുന്നു മുൻ തീരുമാനം നിപ വൈറസ് ബാധയെ ്തുടർന്ന് എല്ലാ പൊതുപരിപാടികളും നിർത്തിവെയ്ക്കാൻ ഗവൺമെന്റ് ഉത്തർവിട്ട സാഹ ചരൃത്തിലാണ് നടപടി ഗ്രാമപഞ്ചായത്തുകൾക്കായി കില കുന്നുമ്മൽ കുന്ദ മംഗലം എന്നിവിടങ്ങളിൽ നടത്താനിരുന്ന പരിശീലന പരിപാടികളും മാറ്റി യിട്ടുണ്ട് ജില്ലാ പി എസ്

ദർശ്ശേദ്ദർ നിപ വൈറസ് നിയന്ത്രണത്തിൽ കേന്ദ്രഗവൺമെന്റ് വിദേശ രാജ്യങ്ങ ളുടെ അഭിപ്രായം തേടിയതായി കേന്ദ്രമന്ത്രി അശ്വനികുമാർ ചൌബേ അറി യിച്ചു ഈ വൈറസിനെതിരെ ഫലപ്രദമായ മരുന്ന് ഇല്ലെന്നാണ് ലഭിച്ച വിവ രം ഓസ്ട്രേലിയയിൽ ചിലതരം വൈറസ് ബാധക്കെതിരെ ഉപയോഗിക്കുന്ന റിബാവൈറിൻ ആന്റിജൻ ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റ് ശ്രമിച്ചുവരികയാ ണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു നിപ രോഗബാധ നിയ ന്ത്രണത്തിനും ആരോഗ്യ പ്രവർത്തകർ പാലിക്കേണ്ട പ്രതിരോധ നടപടികൾ സംബന്ധിച്ചും കേന്ദ്ര ആരോഗൃമന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചു രോഗ വ്യാപനം തടയാനാവശ്യമായ മാർഗ്ഗ നിർദ്ദേശങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷി കളോ മൃഗങ്ങളോ കടിച്ച പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കരുതെന്നും തുറന്ന പാത്ര ങ്ങളിൽ ശേഖരിച്ച കള്ള് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്

ഇതിനെ വലിയൊരു പകർച്ച വ്യാധിയായി കാണാനാവില്ലെന്നും അവർ വിലയിരുത്തി കേരളത്തിൽ ഇതു വരെ ഉണ്ടായ നിപ മരണങ്ങളും രോഗവ്യാപനവും പരിശോധിച്ച ശേഷമാണ് കേന്ദ്രസംഘം ഈ നിഗമനത്തിലെത്തിയത് ദർവ്വെട്ടറ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുമായി അടുത്തിടപഴകിയ മലപ്പുറം ജില്ലയിലെ നൂറോളം പേരെ ആരോഗൃവകുപ്പ് നിരീക്ഷിച്ചുവരികയാണ്

തൃശൂർ മെഡിക്കൽ കോളജിൽ നിപ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളുമായി ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം ചങ്ങരംകുളം സ്വദേശിനിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി മെഡിക്കൽ കോളജ് സൂപ്രണ്ട് അറിയിച്ചു രുട്ടിട്ട്ട്ട്ട്ട്ട്ട നിപ പനി വളർത്തുമൃഗങ്ങളിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു അതിനാൽ കർഷകർ ആശ ങ്കപ്പെടേണ്ട സാഹചര്യമില്ല വവ്വാലുകൾ കടിച്ച പഴവർഗ്ഗങ്ങൾ മനുഷ്യർ കഴി ക്കുകയോ വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നിപ വൈറസ് ബാധയെ തുടർന്ന് നാലുപേർ മരിച്ച ചങ്ങ രോത്ത് പഞ്ചായത്തിൽ ശുചിത്വമിഷൻ ഹരിതകേർളം വേങ്ങേരി നിറവ് എന്നി വയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി രദേവ്ട്ട്ട്ട്ട്ട്ട് നിപ ബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ അടിയന്തിര സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃ ത്വത്തിൽ അവലോകന യോഗം ചേർന്നു് ആളുകളെ ഭയപ്പെടുത്തുന്ന തര ത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്ന് അദ്ദേഹം ആവശൃപ്പെട്ടു രോഗം നിയന്ത്രണവിധേയമാക്കാൻ ഗവൺമെന്റ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തിവരുന്നതായി മന്ത്രി വെളിപ്പെടുത്തി

ഇന്നലെ ഒരാളിൽകൂടി നിപ വൈറസ് സ്ഥിരീകരി ച്ചു മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നഴ്സിംഗ് വിദ്യാർത്ഥിയിലാണ് രോഗബാധ തിരിച്ചറിഞ്ഞത് ഇന്ന് പേരാമ്പ്ര അടക്കം മേഖലകളിൽ ആശ പ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പരിശീ ലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് രദ്ദേഷ്ടങ വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന ചെങ്ങന്നൂർ ഉപതെരഞ്ഞെ ടുപ്പിന് ഇനി മൂന്നുനാൾ ബാക്കി പ്രചാരണത്തിന് മുൻനിര നേതാക്ളആണ് മണ്ഡലത്തിൽ നേതൃത്വം നൽകുന്നത് ത്രിപുര മുഖ്യമന്ത്രി ബിപ്സവ്ദേവ് കുമാർ ഇന്നലെ എൻ ഡി

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും എൽ ഡി

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും യു ഡി

തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ് ബുധനാഴ്ച ഫലപ്രഖ്യാപനവും ഉണ്ടാവും രംഭട്ട്ട്ട്ട്ട്ട്ട്ട തമിഴ്നാട്ടിൽ തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് വിരുദ്ധ സമരക്കാർക്ക് നേരെ യുണ്ടായ പൊലീസ് വെടിവെപ്പിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷത്തിന്റെ ബന്ദ് ആരംഭിച്ചു

എം കെ യ്ക്ക് പുറമെ കോൺഗ്രസും എം

കെയും ഇടത് പാർട്ടികളും മുസ്തിംലീഗും ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് റോഡ് റെയിൽ ഗതാഗതം സ്തംഭിപ്പിക്കുമെന്ന് ബന്ദനുകൂലികൾ അറിയിച്ചു പൊലീസ് വെടിവെപ്പിൽ ഇതുവരെ പതിമൂന്ന് പേരാണ് മരിച്ചത്

ഡി കുമാരസ്വാമി നിയമസഭയിൽ ഇന്ന് വിശ്വാസവോട്ട് തേടും സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തിയ ശേഷമായിരിക്കും വിശ്വാസവോട്ടെടുപ്പ് കോൺഗ്രസിലെ കെ ആർ രമേശ്കുമാറും ബി

പി യിലെ എസ്

നിയമസഭയിൽ കോൺഗ്ര സ് ജെ ഡി

ജെ

അതിനിടെ അഞ്ചുവർഷവും എച്ച്

കുമാരസാമി മുഖ്യമന്ത്രിയായി തുട രുന്ന കാര്യത്തിൽ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം ഇതുവരെ തീരുമാന മെടുത്തിട്ടില്ലെന്ന് ഉപമുഖ്യമന്ത്രി ജി പരമേശ്വര അറിയിച്ചു

എൽ രണ്ടാം കാളിഫയർ മത്സരത്തിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ്റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി ഏഴിനാണ് മത്സരം വിജയി ക്കുന്ന ടീമും ചെന്നൈ സൂപ്പർകിംഗ്സും മറ്റന്നാൾ ഫൈനലിൽ ഏറ്റുമുട്ടും

രാമകൃഷ്ണൻ കൊല്ലം പുനലൂർ റിഹാബിലിറ്റേഷൻ പ്താന്റേഷൻ സന്ദർശി ച്ചു

എരൂർ ആയിരനല്ലൂർ എസ്റ്റേറ്റിൽ കശുമാവ് കൃഷി വ്യാപന പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു

മൊയ്തീൻ കാസർകോട്ട് പറഞ്ഞു വ്യവസായം തുടങ്ങാനെത്തുന്നവർക്ക് അനുകൂല സാഹചരൃം ഒരുക്കാൻ പുതിയ നിയമനിർമ്മാണം നടത്തിയിട്ടു ണ്ട്

ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം മുഖ്യാതിഥിയായി പങ്കെടുക്കും രുട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് കൊല്ലം ജില്ലാ വെറ്ററനറി കേന്ദ്ര ത്തിൽ നിർമ്മിക്കുന്ന അത്യാധുനിക ക്ലിനിക്കൽ ലാബ് സമുച്ചയത്തിന് മന്ത്രി കെ രാജു ഇന്ന് തറക്കല്ലിടും മൃഗങ്ങളിലെ നിപ പനി പക്ഷിപ്പനി പേവിഷ ബാധ എന്നിവയടക്കം രോഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന രാജ്യാന്തര നിലവാരത്തോടുകൂടിയ ലാബാണ് തേവള്ളിയിൽ നിർമ്മിക്കുന്നത് രദേഷ്ടെടു ഇടുക്കി നെടുങ്കണ്ടത്ത് പട്ടികജാതി പട്ടികവർഗ്ഗ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച ഹോസ്റ്റൽ സമുച്ചയം മന്ത്രി എം

രദേഷ്ടെടു ഇടുക്കി ജില്ലയിൽ ആദ്യമായി ദേശീയ നിലവാരത്തിൽ നിർമ്മിക്കുന്ന രാജാക്കാട് പൂപ്പാറ റോഡ് പദ്ധതി മന്ത്രി ജി സുധാകരൻ നാളെ ഉദ്ഘാടനം ചെയ്യും

കെ നെടുങ്ങാടി സ്മാരക മാധ്യമ പുരസ്കാരം ഇന്ന് ട രാവിലെ കോഴിക്കോട്ട് വിതരണം ചെയ്യും

ഐ എം സി ഡയറക്ടർ ജന റൽ കെ

സുരേഷ് അവാർഡിനർഹനായ മനോരമ മലപ്പുറം യൂണിറ്റിലെ അനിൽ കുരുടത്തിന് ഉപഹാരം സമ്മാനിക്കും

എസ് എൽ സി പരീക്ഷയ്ക്ക് മികച്ച വിജയം നേടിയ എറണാകുളം ജില്ലയിലെ പിണവൂർകുടി ഗവൺമെന്റ് ഹൈസ്കൂളിന് സ്കൂൾ വാഹനം ഉപഹാരമായി നൽകി

രദ്ദേഷ്ടങ വയനാട് ചുരത്തിൽ പുതുതായി നിർദ്ദേശിക്കപ്പെട്ട ബൈപാസിന്റെ സാധ്യത വിലയിരുത്താൻ വനം റവന്യൂ ദേശീയപാതാ വകുപ്പ് അധികൃ തർ പരിശോധന നടത്തി